ഈ മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണം ഇന്നലെ വൈകീട്ട് അവ സാ നി ച്ചു

പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി എന്നിവരടക്കം പ്രമുഖ നേതാക്കൾ പ്രചാരണ രംഗത്തുണ്ട്

വനാവകാശ നിയമത്തെ ക്കുറിച്ച് രാഷ്ട്രീയ ഭരണഘടനാ അവകാശങ്ങൾക്കകത്തുനി ന്നുകൊണ്ടാണ് സംസാരിച്ചതെന്ന് കമ്മീഷനു നല്കിയ മറുപടിയിൽ രാഹുൽ വൃക്തമാക്കി പ്രസംഗത്തിനെതിരെ ബി ജെ പി നൽകിയ പരാതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഹുൽഗാന്ധിയോട് വിശദീകരണം തേടിയത്

വനാവകാശ നിയമത്തിൽ ഗവൺമെന്റ് കൊണ്ടുവന്ന ഭേദഗതി ലളിതഭാഷയിൽ ചുരുക്കി വിവരിക്കാനാണ് താൻ ശ്രമിച്ചതെന്നും രാഹുൽ വ്യക്തമാക്കി ബി ജെ പിയുടെ പരാതി തള്ളണമെന്നും രാഹുൽ ആവശ്യ പ്പെട്ടു

മുഴുവൻ പോസ്റ്റൽ വോട്ടുകളും റദ്ദാക്കണമെന്നും അദ്ദേഹം കോഴിക്കോട്ട് വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ആസൂത്രിത നീക്കം നടന്നതിന്റെ ഭാഗമായാണ് വോട്ടർപട്ടികയിൽ നിന്നും കൂടുതൽ പേർ പുറത്തായതെന്ന് അദ്ദേഹം ആരോപിച്ചു ഇക്കാര്യത്തിൽ ബൂത്ത് ലെവൽ ഓഫിസർമാരുടെയും ഡെപ്യൂട്ടി തഹസിൽദാറുമാരുടേയും പങ്ക് അന്വേഷിക്കണം

കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കള്ളവോട്ട് രാഷ്ട്രീയ ആചാരമായി മാറി കഴിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു

സി പി ഐ എം പ്രവർത്തകൻ വേങ്ങാട് സായൂജിനെതിരെയാണ് കേസെടുത്തത്

ചാല ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ് വോട്ടെണ്ണൽ കേന്ദ്രം

അരിസോണയിലെ നിർമ്മാണ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങിൽ വ്യോമസേനാ എയർമാർഷൽ എസ് ബുത്തോല ഹെലി കോ പ്ടർ എ ഏറ്റുവാങ്ങി

രാത്രികാഴ്ചയും അതൃാധു നിക സെൻസറും സജ്ജമാക്കിയ ഹെലികോപ്റ്ററിന്റെ കവചം വെടിയുണ്ടകൾ ചെറുക്കാൻ ശേഷിയുള്ളതാണ്

രാത്രി ഏഴിന് ആദ്യ തിരുവമ്പാടി വിഭാഗവും അതിന് ശേഷം പാറമേ ക്കാവും സാമ്പിൾ വെടിക്കെട്ടിന് തിരികൊളുത്തും ഇതിന്റെ മുന്നോടിയായി ഇന്നലെ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്ഥ ങ്ങളുടെ വെടിക്കെട്ട് സാമഗ്രികൾ പൊലീസ് പരിശോധിച്ചു തൊഴിലാളിക്ളുടെ വിശദാംശങ്ങളും ശേഖരിച്ചു വെടിക്കെട്ട് നടത്തുന്ന ഭാഗത്തുനിന്ന് പൊതുജനങ്ങളെ നൂറുമീറ്റർ മാറ്റിനിർത്തും

അഞ്ച് ഐ

ഐമാരും ഉൾപ്പെടെ നാലായിരത്തോളം ഉദ്യോ ഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് തൃശൂർ റേഞ്ച് ഐ ജി ബൽറാം കുമാർ ഉപാധ്യായ സിറ്റി പൊലീസ് കമ്മീഷണർ യതീഷ്ചന്ദ്ര എന്നിവരുടെ നേതൃത്വത്തിലാണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്ന ത്

ആരോഗ്യനിലതൃപ്തികരമാണെന്നും ഡോക്ടർമാർ അറിയിച്ചു കാഴ്ച്ച പൂർണമായും നഷ്ടപ്പെട്ടുവെന്ന് പറയാൻ കഴിയില്ലെന്നും പാപ്പാന്മാരോട് അനുസരണ കാണിക്കുന്നുണ്ടെന്നും മെഡിക്കൽ സംഘം അറിയിച്ചു മൂന്നംഗ മെഡിക്കൽ സംഘമാണ് ആനയുടെ ആരോഗൃ ക്ഷമത പരിശോധിച്ചത് പരിശോധനാ റിപ്പോർട്ട് കലക്ടർക്ക് കൈമാറി

വകുപ്പുതല അന്വേ ഷണം ഫലപ്രദമല്ലെന്ന് കണ്ടാൽ കേസ് പൊലീസിന് കൈമാ റും വിജയശതമാനം കൂട്ടാൻ സ്കൂളുകൾക്ക് ഒരു സമ്മർദ്ദവും ഉണ്ടായിരുന്നില്ലെന്ന് മന്ത്രി സ്വകാരൃചാനലിനോട് പറഞ്ഞു

ചാവറ കൾച്ചറൽ സെന്റർ എൻ ജി ഒ യൂണിയൻ ഹാൾ മാനാഞ്ചിറ പബ്ലിക് ലൈബ്രറി ഹാൾ എന്നിവിടങ്ങളിലാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത് മേളയുടെ ഔപചാരിക ഉദ്ഘാടനം വൈകീട്ട് അഞ്ചിന് സംവിധായകൻ അടൂർഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും

വിശാഖപട്ടണത്ത് ഇന്നലെ അവ സാന കാളിഫയറിൽ ഡൽഹി ക്യാപ്പിറ്റൽസിനെ ആറ് വിക്ക റ്റിന് തോൽപ്പിച്ചാണ് ചെന്നൈ ഫൈനലിൽ പ്രവേശിച്ചത് നേരത്തെ ഒന്നാം കാളിഫയറിൽ ചെന്നൈ സൂപ്പർകിംഗ്സിനെ തോൽപ്പിച്ചാണ് മുംബൈ ഇന്ത്യൻസ് ഫൈനലിലെത്തിയത്

എൽ ഫൈനലിൽ ചെന്നൈയും മുംബൈയും അവസാനമായി ഏറ്റുമുട്ടിയത്

മൂന്ന് കിരീടങ്ങൾ വീതം ഇരുടീമുകളും നേടിയുട്ടുണ്ട് ചെന്നൈയ്ക്ക് ഇത് എട്ടാം ഫൈനലാണ് കേരള പ്രപീമിയർ ലീഗിന്റെ ആദ്യ സെമിയിൽ കോഴിക്കോട്ട് ഇന്ന് ഇന്ത്യൻ നേവി എഫ്

വൈകീട്ട് നാലിന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് മത്സ രം

ഇന്നലെ നടന്ന എ ഡിവിഷൻ ആദ്യ സെമിയിൽ ഫാറൂഖ് കോളെജ് എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് യംഗ് ചാലഞ്ചേഴ്സിനെ പരാജയപ്പെടുത്തി രണ്ടാമത്തെ മത്സരത്തിൽ സാമൂതിരി ഗുരുവായുരപ്പൻ കോളെജ് ഏകപക്ഷീയമായ ഒരു ഗോളിന് കാർട്സ് എഫ് സിയെ തോൽപ്പിച്ചു

മല തിരൂർ സ്വദേശി പ്പുറം ഒഴൂർ പൈക്കോട്ടുവീട്ടിൽ രുക്മിണി ഇവരുടെ സഹോദരപു ത്രൻ ആറ് വയസ്സുകാരൻ അലൻകൃഷ്ണ എന്നിവരാണ് മരി ച്ചത് ആറ് പേർക്ക് പരിക്കേറ്റു മൂന്ന് പേരുടെ നില ഗുരുതര മാണെന്നാണ് റിപ്പോർട്ട് ഗുരുവായൂർ ക്ഷേത്രദർശനം കഴിഞ്ഞ് മടങ്ങിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് മാധ്യമപ്രവർത്തകയും അധ്യാപികയുമായ ബിന്ദുഭാസ്കർ ബാലാജി ചെന്നൈ യിൽ അന്ത രി ച്ചു

ടൈംസ് ഓഫ് ഇന്ത്യ ഉൾപ്പെടെ മാധ്യമ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് ചെന്നൈ ഏഷ്യൻ കോളജ് ഓഫ് ജേർണലിസത്തിൽ അധ്യാപികയായിരുന്നു

പ്ലാസ്റ്റിക് മാലിന്യം നിർമ്മാർജ്ജനം ചെയ്ത് പക്ഷികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ സന്ദേശം വർഷംതോറും ഒൻപത് ലക്ഷം ദേശാടനപക്ഷികൾ ലോകത്ത് പ്ലാസ്റ്റിക് മലിനീകരണം മൂലം ചത്തൊടുങ്ങുന്നു വെന്നാണ് കണക്ക്

ഹരിതകേ രള മിഷന്റെ നേതൃത്വത്തിൽ ഇക്കോടൂറിസം നടപ്പാക്കാനാണ് ആലോചിക്കുന്നത്

സംഘം ഇപ്പോൾ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് ഇതുസംബന്ധിച്ച് തിങ്കളാഴ്ച പൊലീസ് കോടതിയിൽ അപേക്ഷ നല്കും വില്യാപ്പള്ളി സ്വദേശി റഷീദ് തലശ്ശേരി ധർമ്മടം പാലയാട് സ്വദേശി സജീവൻ പാലയാട് സ്വദേശി ലെനീഷ് ധർമടം സ്വദേശി ഷിജിൻ തലശ്ശേരി ചക്കരക്കൽ സ്വദേശി അശ്വന്ത് പാലയാട് സ്വദേശി സജിത്ത് എന്നിവരെയാണ് ഇന്നലെ വടകര പൊലീസ് പിടികൂടിയത്